വൈദ്യശാസ്ത്രത്തിനായി ആഗോള കേന്ദ്രം സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവം കേരളത്തിൽ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയം അവസാനഘട്ടത്തിൽ

ഐ

ലക്ഷ്യമിട്ട് മുംബൈ സിറ്റിയും എ

കെ മോഹൻ ബഗാനും

വിശദാംശങ്ങളുമായി മൈത്രി ബി

വോയ്സ് ആയൂർവേദത്തെ ആധുനിക ശാസ്ത്രത്തോടൊപ്പം ചേർത്ത് നിർത്തി ഗവേഷണങ്ങൾ നടത്താനും യുവാക്കൾക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും അനുയോജ്യ സാഹചര്യമാണ് രാജ്യത്തുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായി കേന്ദ്രസർക്കാർ എല്ലാ പിന്തുണയും നൽകും

ആയൂർവ്വേദത്തിനോടും പരമ്പരാഗത ചികിത്സാ രീതികളോടും വർദ്ധിച്ചുവ്യുന്ന താൽപര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ദേശീയ ആയൂഷ് മിഷൻ ആരംഭിച്ചത് ആയൂർവേദത്തിന് നൽകുന്ന പ്രാധാന്യത്തെയാണ് സൂ്ചിപ്പിക്കുന്നത് ഇതിലൂടെ ആയൂർവേദ ചികിത്സയേയും വിദ്യാഭ്യാസത്തേയും കുടുതൽ ശക്തിപ്പെടുത്താനാകും ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം പരമ്പരാഗത ഔഷധങ്ങളും ആവശ്യമാണെന്ന് ലോകം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒറ്റ ഡോസ് വാക്സിനായിരിക്കും വിതരണം ചെയ്യുന്നത് ആസിയാൻ രാജ്യങ്ങൾ പസഫിക് മേഖല എന്നിവിടങ്ങൾക്ക് പുറത്തേക്കും വാക്സിൻ എത്തിക്കും

വാരാണസിയിലെ പരിപാടികൾ കൂടാതെ സോൻഭദ്ര മിർസാപൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിലും അദ്ദേഹം സംബന്ധിക്കൂർ വൈകുന്നേരം കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ച് ആദ്ദേഹം ഗംഗാ ആരതിയിൽ പങ്കെടുക്കും നാളെ വൻവാസ്സി സ്മാഗമത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി സോൻഭദ്ര ജില്ലിയിലെ സേവാകുഞ്ച് ആശ്രമം ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ ഗംഗാ പരിസ്ഥിതിയും സംസ്കാരവും എന്ന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും രാഷ്ട്രപതിയുടെ സന്ദർശനുത്തിന്റെ പശ്ചാത്തലത്തിൽ മേഖലയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കി ലോക്കൽ പൊലീസിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള സുരക്ഷാ സേനയെയും പൊലീസിനെയും സോൻഭദ്ര മിർസാപൂർ ജില്ലകളിൽ വിന്യസിച്ചിട്ടുണ്ട്

ബംഗളൂരു പൂനെ ഭുവനേശ്വർ പടന് മണിപൂരിലെ മൊയിറാംഗ് ജമ്മുവിലെ സാംബ എന്നിവിടങ്ങളിലെ പ്രദർശനങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൂടാതെ ഡൽഹിയിലെ ദേശീയ മാധ്യമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിനും ശ്രീ

ഡൽഹിയിൽ നിന്നും വിനോദസഞ്ചാരികളുമായി ്പ്ന്ന് മിനിബസ് ഗഡ്ന ഗ്രാമത്തിനടുത്ത് വച്ച് ട്രക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു

പൊതുവിതരണ സംവിധാനങ്ങളെയും വിവിധ വകുപ്പുകളെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് മൊബൈൽ ആപ്തിക്കേഷൻ രൂപകല്പന ചെയ്തിട്ടുള്ളത് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണറുടെ നിർദ്ദേശാനുസരണമാണ് നടപടിയെന്ന് ആകാശവാണി ജമ്മുകശ്മീർ പ്രതിനിധി റിപ്പോർട്ട് ചെയ്തു

ആരോഗ്യം കമ്മ്യൂണിറ്റി സേവന കേന്ദ്രങ്ങൾ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ബാങ്കുകൾ തുടങ്ങി നിരവധി വകുപ്പുകളുടെ സേവനങ്ങളും ഇ സുവിധ ആപ്പിൽ ലഭിക്കും

ഇന്നലെ വൈകിട്ട് ഡെറാഡൂണിൽ നടന്ന കൃാബിനറ്റ് സമ്മേളനത്തിന്റെ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ന്യൂസ് ഡെസ്ക് ആകാശവാണി

പ്രതിപക്ഷ പാർട്ടിയായ ഡി എം കെ

ഇതിന് മുന്നോടിയായി പാർട്ടി നേതാവ് സ്റ്റാലിൻ തന്റെ പിതാവും ഡി

ഉപമുഖ്യമന്ത്രി ഒ്

എ ഡി എം കെ

ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ലിസ്റ് വൈകാതെ പ്രഖ്യാപിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്ന മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു

അഴീക്കോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ വി സുമേഷും കൂത്തുപറമ്പിൽ എൽ ജെ ഡി യിലെ കെ പി മോഹനനുമാണ് മത്സരിക്കുന്നത്

ബി ജെ പി യുടെ പ്രചാരണത്തിനായി പ്രധാന്മന്ത്രി നരേന്ദ്രമോദി പാർട്ടി പ്രസിഡന്റ് ജെ പി നഡ്ഡ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് അമിത് ഷാ എന്നിവർ രംഗത്തുണ്ട് കോൺഗ്രസ്സ് അധ്യക്ഷ സോണിയ ഗാന്ധി മുൻ പ്രധാനമന്ത്രി മൻമോഹൻസിംഗ് നേതാക്കളായ രാഹുൽഗാന്ധി പ്രിയങ്കഗാന്ധി എന്നിവർ കോൺഗ്രസ്സിനായി പ്രചാരണ രംഗത്ത് സജീവമാണ്

ബഗാനുമായി ഏറ്റുമുട്ടും

അഹമ്മദാബാദ് മ്മൊട്ടേറയിലെ മോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നലെ നടന്ന് ആദ്യ മത്സരത്തിൽ ് ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റിന് വിജയിച്ചു